ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാക്കാതെ ലോകത്തെ ഒരു രാജ്യ ത്തിനും പുരോഗതി കൈവരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രാ യപ്പെട്ടു ശാസ്ത്ര ഗവേഷണങ്ങളിൽ നിന്ന് ജനങ്ങൾ ഉടൻ ഫലം പ്രതീക്ഷിക്കരു തെന്ന് അദ്ദേഹം പറഞ്ഞു കൊൽക്കത്തയിൽ അന്തർദേശീയ സയൻസ് ഫെസ്റ്റി വെൽ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാന മന്ത്രി

അയോധ്യ കേസിൽ സൂപ്രീം കോടതി വിധി വരുന്നതിന് മുന്നോടി യായി മുതിർന്ന ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ മുസ്സിം മത പണ്ഡിതരു മായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച ഏതു സാഹചര്യത്തിലും രാജ്യത്തെ സാഹോദര്യവും ഐക്യവും ശക്തിപ്പെടുത്തുന്നതിന് ശ്രമം തുടരാൻ യോഗം തീരു മാനിച്ചതായും നഖ്വി പിന്നീട് അറിയിച്ചു

വ്യത്യസ്തമായ കാര ണത്താലാണ് ഹർജി മാറ്റുന്നതെന്ന് കാരണം വ്യക്തമാക്കാതെ നിയുക്ത ചീഫ് ജസ്റ്റിസ് എസ് കെ ബോബ്ഡെ നേതൃത്വം നൽകുന്ന മൂന്നംഗ ബഞ്ച് അറിയിച്ചു കുട്ടികൾ ഇരകളാകുന്ന പോക്സോ കേസുകളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരി ക്കാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചു ആഭ്യന്തരം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി നിയമം പട്ടികജാതി പട്ടിക വർഗ്ഗ വികസനം എന്നീ വകുപ്പുക ളുടെ സെക്രട്ടറിമാർ സമിതിയിൽ അംഗങ്ങളായിരിക്കും രണ്ടു മാസ്ം കൂടുമ്പോൾ ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്കൂളു കളിലും കൂട്ടികൾക്ക് കൌൺസലിംഗ് നൽകാൻ സംവിധാനം ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വീടുകളിൽ അടക്കമുണ്ടാകുന്ന പീഡനം തുറന്നുപറയാൻ കുട്ടികൾക്ക് ധൈര്യം ലഭിക്കണം ഇതിനായി കൌൺസലർമാക്ക് പരിശീലനവും നിയമബോധവൽക്കരണവും നൽകാനും യോഗം തീരുമാനിച്ചു സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കളുടെ വില്പന കർശനമായി തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു എസ് ബി ഐ കനറാ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് കേരളത്തിൽ കൊച്ചിയി ലാണ് റെയ്ഡ് നടന്നത് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപറേഷൻ കഴിഞ്ഞ മൂന്നുവർഷ ത്തിനുള്ളിൽ സ്തുത്യർഹമായ നേട്ടം കൈവരിച്ചതായി മന്ത്രി കെ

ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ കൃത്രിമ അവയവങ്ങൾക്കായി അത്യാധുനിക ഷോറും സ്ഥാപിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു

കേസിൽ ഇന്നലേയും പ്രതിഭാഗത്തിന്റെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു

അതേസമയം കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ്ബാബു ആവശ്യപ്പെട്ടു ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ചില സംഘടനകളും കോടതിയെ സമീപിച്ചിട്ടുണ്ട് വാളയാർ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യ പ്പെട്ട് ബി

പി പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന നീതി രക്ഷാ മാർച്ച് ഇന്ന് ആരംഭിക്കും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ നയിക്കുന്ന മാർച്ച് ഉച്ചക്ക് വാളയാറിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും

മുഖ്യമന്ത്രിക്കുപകരം ചീഫ് സെക്രട്ടറി കേരളം ഭരിക്കുന്ന ഞെട്ടിക്കുന്ന അവസ്ഥയുടെ ദുരന്ത ഫലങ്ങളാണ് നാട് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് യുദ്ധമാണെന്നും ഇതിൽ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാമെ ന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ചീഫ് സെക്രട്ടറി എഴുതിയ ലേഖനത്തിൽ പറയു ന്നത് നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയെഴുതിയ ലേഖനം ചട്ടലംഘനമാണെന്നും ഇതിനോട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണ മെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൌണ്ടിൽ വ്യാജപ്പണം വെളുപ്പിച്ചു എന്ന തലക്കെട്ടിൽ മുൻമന്ത്രി വി

ഇബ്രാഹിംകുഞ്ഞിനെതിരെ വന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചന്ദ്രിക മാനേജിംഗ് ഡയറക്ടർ പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ അറിയിച്ചു ചന്ദ്രിക കാലകാലങ്ങളിൽ നടപ്പിലാക്കി വരുന്ന വരിസംഖ്യാ പദ്ധതിയിൽ ദീർഘകാല വരിക്കാരുടേതായി സമാഹരിച്ച തുക നിയമാനുസൃതം ചന്ദ്രികയുടെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചതിനെയാണ് തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

യോഗ്യതാമത്സരത്തിൽ ബി ഗ്രൂപ്പിലെ ആദ്യമത്സരത്തിൽ കർണാടക ഇന്ന് പുതുച്ചേരിയെ നേരിടും

ഇന്നലെ എ ഗ്രൂപ്പിലെ ആദ്യമത്സരത്തിൽ ആതിഥേയരായ കേരളം എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ആന്ധ്രപ്രദേശിനെ പരാജയപ്പെടുത്തി മൂന്ന് പോയിന്റ് നേടി

രാത്രി ഏഴരയ്ക്ക് ഹൈദരാബാദി ലാണ് മത്സരം കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബാൾ ഫൈനൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് സർവകലാശാലാ സ്റ്റേഡിയത്തിൽ നടക്കും

രാവിലെ ലൂസേഴ്സ് ഫൈനലിൽ ഫാറൂഖ് കോളെജ് ഐ എസ് എസ് കോളെജ് പെരിന്തൽമണ്ണയെ നേരിടും ഗുണ്ടൂരിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ കേരളത്തിന് രണ്ട് സ്വർണ്ണവും ആറ് വെങ്കലവും ലഭിച്ചു ഫീൽഡിൽ ലീസ്ബത്ത് കാരലിൻ ജോസഫും ട്രാക്കിൽ പ്രിസ്കില ഡാനിയലുമാണ് സ്വർണ്ണം നേടിയത്

കലോത്സവത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നഗ രത്തിലെ മുഴുവൻ ഹോട്ടലുകളും കൂൾബാറുകളും ഭക്ഷ്യ സുരക്ഷാ പരിശോധ നയ്ക്ക് വിധേയമാക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി

രമേശൻ അറിയിച്ചു

ഇതേ തുടർന്ന് നാളെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയിൽ നാളെയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ മറ്റന്നാളും എറണാകുളം ജില്ലയിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

രവീന്ദ്രനാഥൻ നായർ വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കൊല്ലം കോർപറേഷൻ സംഘടിപ്പിച്ച ആദരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ

മാതൃശിശു സംരക്ഷണം പോഷ കാഹാരം സാമ്പത്തിക സുരക്ഷ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളെകു റിച്ച് വിദഗ്ദ്ധർ ക്ലാസെടുക്കും തുടർന്ന് സോങ് ആന്റ് ഡ്രാമ ഡിവിഷനിലെ കലാ കാരന്മാരുടെ നൃത്താവിഷ്കാരം ഉണ്ടായിരിക്കും

ഗാന്ധിജിയുടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും സുപ്രധാന ഘട്ടങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുന്നതാണ് പ്രദർശനം

നഷ്ടപരിഹാരം നൽകാൻ ഇതിനായി ചുമതലപ്പെടുത്തിയ ജസ്റ്റിസ് കെ ബാലകൃ ഷ്ണൻ നായർ സമിതി ശുപാർശ ചെയ്തു

അതിനിടെ മരടിൽ ഫ്ളാറ്റുകൾ പൊളി ക്കുന്ന നടപടി ആരംഭിച്ചു കൊല്ലപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ താനൂർ അഞ്ചുടിയിലെ ഇസ്ഹാഖിന്റെ കുടുംബത്തിന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി സ്വരൂപിച്ച ഒരു കോടി രൂപ ഇന്ന് കൈമാറും

രണ്ട് പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും ് ് ് ് ് ് കണ്ണൂർ കണ്ണവത്തെ എ

പി പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് പൊലീസ് അറസ്റ്റ് ചെയ്തു

ജാമ്യം റദ്ദാക്കി ഇയാളെ കോടതി റിമാന്റ് ചെയ്തു ് കൂടത്തായി കൊലപാതക പരമ്പരയിലെ മഞ്ചാടിയിൽ മാത്യു കേസിൽ ജോളിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പ്രൊഡക്ഷൻ വാറന്റിന് താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകി മാത്യു കേസിൽ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അതേസമയം ആൽഫൈൻ കേസിൽ രണ്ടാം പ്രതി കക്കാവയൽ എം

മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണസംഘത്തിന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ്ക്ലാസ് മജിസ്ട്രേറ്റ്ഒന്ന് കോടതി അനുമതി നൽകി

ആദ്യഘട്ടത്തിൽ മൂന്ന് ഡാമുകളിൽ ആണ് സൈറൺ സ്ഥാപിച്ച് ട്രയൽ റൺ നടത്തിയത്

പുനഃസ്ഥാപിക്ക ണമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ യോഗം ആവശ്യ പ്പെട്ടു നഗരസഭ ബസ്സ്റ്റാൻറിൽ കെ എസ് ആർ ടി സി യ്ക്കു വേണ്ടി പ്രത്യേകം ട്രാക്ക് അനുവദിച്ചത് തൃശ്ശൂരി ലേക്ക് പോകുന്ന യാത്രക്കാരുടെ സൌകര്യം പരിഗണിച്ചാണെന്നും നഗര സഭ അറിയിച്ചു

പട്ടയവിതരണത്തിന് നടപടി ആരംഭിച്ചു